പുതിയ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കാനും പ്രതിരോധ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തത്തിനും ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ഉത്തർപ്രദേശിലും തമിഴ്ന്നാട്ടിലും നിർമ്മിക്കുന്ന പ്രതിരോധ ഇടനാഴി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് മുതൽ കൂട്ടാകും

പ്രതിരോധ മേഖലയിൽ സ്വയംപര്യാപ്തത നേടുന്നതിലൂടെ പുതിയൊരു ഇന്ത്യയെ നിർമ്മിക്കാൻ സാധിക്കുമെന്നും ശ്രീ

സാമ്പത്തിക അസമത്വങ്ങളിൽ നിന്നും രാജ്യത്തെ ജനങ്ങളെ മോചിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നാണ് പദ്ധതിക്ക് തുടക്കമിട്ടുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്

എം

വൈ അക്കൌണ്ടുകളിലൂടെ വിവിധ സർക്കാർ പദ്ധതികളുടെ ഭാഗമായി നേരിട്ടുള്ള ധനസഹായം നിലവിൽ ലഭ്യമ്ടൂക്കുന്നു

ടി കൌൺസിൽ യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

നടപടിക്രമങ്ങൾക്ക് ജി

ടി കൌൺസിലിന്റ അംഗീകാരം ലഭിച്ചതിനുശേഷം എത്രയുംവേഗം തുക സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാക്കും കോവിഡ് മഹാമാരിയെ തുടർന്ന് സാമ്പത്തിക മേഖലയിൽ ഉണ്ടായ വെല്ലുവിളികൾ മറികടക്കാൻ നികുതി നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും അവർ വ്യക്തമാക്കി

ചടങ്ങിലേക്ക് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രി ഫ്ളോറൻസ് പാർലിയെയും ക്ഷണിച്ചിട്ടുണ്ട്

രാജ്യത്തെ മരണനിരക്കും കുറയുകയാണ്

രോഗവ്യാപനത്തിന്റെ തോത് ഫലപ്രദമായി നിയന്ത്രിച്ചതിനാൽ കേരളത്തിനുണ്ടായ ഗുണങ്ങൾ അനവധിയാണ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ ആവശൃത്തിനു ലാബ് പരിശോധന സൌകര്യങ്ങൾ കോവിഡ് കെയർ ആശുപത്രികൾ തുടങ്ങി രോഗം തടയാൻ ആവശ്യമായ സൌകര്യങ്ങൾ കൃത്യമായി സജ്ജമാക്കാൻ സാധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു

ഗവേഷണ പ്പിക്സ്സന പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ശ്രക്തിപ്പെടുത്താൻ സ്ഥാപനം ഏറെ പങ്ക് വഹിച്ചതായി അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

അരുണാചൽ പ്രദേശ് നിയമസഭയുടെ ഇന്നലെ ചേർന്ന ഏകദിന സമ്മേളനത്തിലാണ് പ്രമേയം പാസാക്കിയത്

നിയമകാര്യമന്ത്രി ബമാംഗ് ഫെലിക്സ് അവതരിപ്പിച്ച പ്രമേയം ശബ്ദ വോട്ടോടെയാണ് സഭ പാസാക്കിയത്

അലിഗഡ് മാറ്റുന്നതായും സർവകലാശാലയ്ക്ക് കീഴിലുള്ള ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിലെ പരീക്ഷാകേന്ദ്രം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് ചരക്കു ലോറികൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഹൈവേയിൽ കുടുങ്ങി കിടക്കുന്നത്

വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മലയോര സംസ്ഥാനങ്ങൾ ദീപുകൾ എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായും പുതിയ റൂട്ടുകൾ അനുവദിച്ചിട്ടുള്ളത് ഉഡാൻ പദ്ധതിയിൽ ഇതുവരെ റൂട്ടുകൾക്കാണ് അനുമതി നൽകിയിട്ടുള്ളതെന്ന് വ്യോമയാന മന്ത്രാലയം അറിയിച്ചു

നേരത്തെ ഇത് സംബന്ധിച്ച് ഡൽഹി ആർോഗ്യമന്ത്രി സത്യേന്ദ്ര ജെയിൻ ആഭ്യന്തര സെക്രട്ടറിക്ക് കത്ത് നൽകീയിരുന്നു എന്നാൽ ഡൽഹി ഭരണകൂടത്തിന്റെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി